ത പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മേഖലയിൽ കോവിഡ് വ്യാപനം തടയാൻ കണ്ടെയ്മെന്റ് കൺട്രോൾ സെൽ രൂപീകരിച്ചു ത രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ തുടക്കം

വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ പരിചയ സമ്പത്തും ഈ സംവിധാനത്തിലൂടെ പങ്കിടാനാകും

ഏഴു ലക്ഷത്തിലധികം പേർ ഇതിനകം രോഗമുക്തരായെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഇളവുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല സമ്പർക്ക കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം

കിൻഫ്ര പാർക്കുകളിലെ ഭക്ഷ്യ സംസ്കരണ മെഡിക്കൽ അനുബന്ധ നിർമ്മാണ യൂണിറ്റുകൾക്കും പ്രവർത്തനാനുമതി നൽകി കെട്ടിട നിർമ്മാണ മേഖലയിൽ തന്നെ തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിർമ്മാണം തുടരാം ദേദ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ കോവിഡ് സ്രവ പരിശോധനയ്ക്ക് ഒരു അത്യാധുനിക ഓട്ടോമാറ്റിക് ന്യൂക്ലിക് ആസിഡ് എക്സ്ട്രാക്റ്റർ മെഷീൻ കൂടി ലഭ്യമാക്കിയതോടെ പരിശോധനാഫലത്തിന് കാല താമസം ഒഴിവായി കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

മൂന്ന് ഡിവിഷനുകളെ നിയന്ത്രണത്തിൽനിന്ന് ഒഴിവാക്കി രുമ ഇടുക്കിയിൽ സമൂഹ വ്യാപന ആശങ്ക വർദ്ധിക്കുകയും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിക്കുകയും ചെയ്തതോടെ ജാഗ്രതയിലാണ് ജില്ല

നഗരസഭയിലെ ഓരോ വാർഡുകളിലും രോഗ വിവരങ്ങൾ അറിയാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും ഇന്നലെ നടന്ന പരിശോധനയിൽ കൂടുതൽ പേർക്ക് കോവിഡ് പൊസിറ്റീവ് കേസുകൾ കണ്ടെത്തിയെന്നാണ് സൂചന

ദേദ കോവിഡ് സമ്പർക്ക വ്യാപനം സ്ഥിരീകരിച്ച ചങ്ങനാശേരി മാർക്കറ്റിൽ അതീവ ജാഗ്രത പുലർത്താൻ കോട്ടയം ജില്ലാ കലക്ടർ നിർദേശം നൽകി

പച്ചക്കറി മാർക്കറ്റിലെയും സമീപത്തെ വ്യാപാര മേഖലകളിലുള്ളവരുടെയും സാമ്പിളുകൾ ശേഖരിക്കും മത്സ്യ ലേലത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തി നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമ പ്രകാരവും പകർച്ചവ്യാധി നിയന്ത്രണ ഓർഡിനൻസ് പ്രകാരവും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു രുമ കൊല്ലം ജില്ലയിൽ സമ്പർക്കംമൂലം കോവിഡ് ബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആന്റിജൻ ടെസ്റ്റുകൾ നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു

ചുമട്ടുതൊഴിലാളികളുടെ ജോലി സ്ഥലങ്ങൾ നിരന്തരം അണു നശീകരണം നടത്തുന്നതിന് തൊഴിലുടമകൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ദ്വിതീയ സമ്പർക്ക പട്ടികയിൽ ഇതിലേറെ ആളുകളുണ്ട് അതേസമയം നഗരത്തിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം പരിമിതമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു രുര കാസർകോട്ട് കോവിഡ് ഭീഷണിയിലും പതറാതെ കർഷക കൂട്ടം പരമ്പരാഗത കൃഷിയ്ക്ക് തുടക്കം കുറിച്ചു

ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഐ ടി മേഖലയുടെയും ഓഹരികളിലാണ് നേട്ടം ദൃശ്യമായത് രുമ സ്വർണ്ണവില ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു

രുര സ്വർണ്ണക്കടത്തിനും രാജ്യദ്രോഹത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടു നിൽക്കുകയാണെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി നാളെ സംസ്ഥാന വ്യാപകമായി കരി ദിനം ആചരിക്കും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ബി

പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചു രുര കർക്കിടക വാവ് ദിനത്തിൽ പിതൃക്കൾക്കായി വീടുകളിൽ ബലി തർപ്പണം നടന്നു കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ സമൂഹ ബലിയിടൽ ചടങ്ങുകളും ബലി ഘട്ടങ്ങളിലെ ചടങ്ങുകളും തടഞ്ഞിരുന്നു പ്രമുഖ തീർത്ഥ കേന്ദ്രങ്ങളായ ആലുവ മണപ്പുറം വയനാട് തിരുനെല്ലി തിരുനാവായ തിരുവല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ബലിതർപ്പണ ചടങ്ങ് ഉണ്ടായിരുന്നില്ല

മഠത്തിലെ നാലാമത് അധ്യക്ഷയായാണ് ഇവർ സ്ഥാനമേൽക്കുന്നത്

കെ ഗോവിന്ദൻ കണ്ണൂർ പാനൂരിനടുത്ത് ചെറുപ്പറമ്പിൽ നിര്യാതനായി

ആദ്യകാല കോൺഗ്രസ് നേതാവായിരുന്നു

ജപ്പാനിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണം